ടൂറിസ്റ്റ് ബസ്സുകളിൽ പരിശോധന തുടരുമെന്ന് മന്ത്രി എ

സിയെ നേരിടും ൾ ൽ ൾ പൌരത്വ ഭേദഗതി ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സ ഭയിൽ അവതരിപ്പിച്ചു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനി സ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായെത്തുന്ന മുസ്ലിംങ്ങൾ ഒഴികെ മതവിഭാഗങ്ങൾക്ക് പൌരത്വം നൽകാൻ ഉദ്ദേ ശിച്ചാണ് നിയമഭേദഗതി

കഴിഞ്ഞ പാർലമെന്റിൽ ലോക്സഭ ബിൽ പാസ്സാക്കിയിരുന്നെ ങ്കിലും രാജ്യസഭയിൽ ബിൽ അവതരിപ്പിച്ചിരുന്നില്ല ലോക്സഭ പിരിച്ചുവിട്ടതിനെ തുടർന്ന് ബിൽ ലാപ്സാവുകയായിരുന്നു ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് ഉന്നത തല യോഗം തീരുമാനിച്ചിട്ടുണ്ട്

ഇന്ന് സഭയിൽ ഹാജരാകാൻ അംഗങ്ങൾക്ക് ബി ജെ പി മൂന്ന് വരി വിപ്പ് നൽകി

പൌരത്വ ഭേദ ഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മതേതര കക്ഷികളെല്ലാം ഒന്നിച്ച് ബില്ലിനെ എതിർക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു അതിനിടെ പൌരത്വ ഭേദഗതി ബില്ലിനെ എതിർത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ ലോക്സഭയിൽ നോട്ടീസ് നൽകി

പൌരൻമാർ അല്ലാത്തവരുൾപ്പെടെ എല്ലാവർക്കും തുല്യസംര ക്ഷണം നിയമം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് നോട്ടീസിൽ പറയുന്നു ആറ് മതവിഭാഗങ്ങൾക്കു മാത്രമാണ് ബിൽ പ്രകാരം പൌരത്വം നൽകുന്നതെന്നും ഇത് വിവേചനമാണെന്നും ശശി തരൂർ പറ ഞ്ഞു

രാജ്യത്ത് അനധികൃതമായി കടന്നുകയറുന്നവരെ രാജ്യത്തിന് പുറ ത്തേക്ക് ഓടിക്കണമെന്നും ശിവസേനാ വക്താവ് സഞ്ജയ് റാവത്ത് ട്വീറ്റ് ചെയ്തു കൂടിയേറ്റ ഹിന്ദുക്കൾക്ക് പൌരത്വം നൽക ണമെന്നും ശിവസേനാ നേതാവ് ആവശ്യപ്പെട്ടു

എൻ പ്രതാപനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ബി ജെ പി അംഗം പ്രഹ്ളാദ് ജോഷി ലോക്സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു രണ്ടു പേരും സ്മൃതി ഇറാനിയോട് മോശമായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ് തെന്നും പ്രമേയത്തിൽ പറയുന്നു അതേ സമയം സഭയിൽ മാന്യത പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്നും നടപടി സംബന്ധിച്ച തീരുമാനം പിന്നീടുണ്ടാകുമെന്നും സ്പീക്കർ ഓം ബിർല വ്യക്തമാക്കി രാജ്യത്ത് തൊഴിലവസരങ്ങൾ കുറയാൻ കാരണം കാണുന്നി ല്ലെന്ന് കേന്ദ്രതൊഴിൽമന്ത്രി സന്തോഷ് കുമാർ ഗാങ്വാർ ലോക്സ ഭയിൽ അറിയിച്ചു കോൺഗ്രസും പ്രാദേശിക കക്ഷികളും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ പ്രശ്നം ചോദ്യോത്തരവേള യിൽ ഉന്നയിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ദീൻദ യാൽ ഉപാധ്യായ ഗ്രാമീണ കൌശല്യ യോജന നിരവധി യുവാ ക്കൾക്ക് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിൽ ലഭിക്കാൻ സഹായകമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സാർക്ക് രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സഹകരണ ത്തിന് ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ ഭീഷണിയിലൂടെയും തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെയും ആവർത്തിച്ച് വെല്ലുവിളിക്കുക യാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു

ഭീകരവാദത്തെയും അതിനെ പിന്തുണയ്ക്കുന്ന ശക്തികളെയും പരാജയപ്പെടുത്താൻ മേഖലയിലെ എല്ലാ രാജ്യങ്ങളും ഫ്ലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇത് കൂടുതൽ ശക്തമായ സാർക്ക് കെട്ടിപ്പടുക്കുന്നതിന് ആത്മവിശ്വാസം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബലാൽസംഗ പോക്സോ കേസുകളിൽ രണ്ടുമാസ ത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ആവശ്യ മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കുമെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു ആറുമാസ ത്തിനകം ഇത്തരം കേസുകളുടെ വിചാരണ പൂർത്തിയാ ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരോടും ആവശ്യപ്പെടും

നിലവിലെ സ്ഥിതി അനുസരിച്ച് ബിജെപിക്ക് അനായാസം ഭരണം തുടരാനാകുന്ന സാഹചര്യമാണ്

രണ്ടിടങ്ങളിൽ വോട്ടെടുപ്പ് പിന്നീട് നടക്കൂം തോൽവി അംഗീകരിക്കുന്നുവെന്നും ജനങ്ങൾ കൂറുമാറ്റക്കാരെ സ്വീകരിച്ചെന്നും കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ബംഗ ളൂരിവിൽ പറഞ്ഞു തോൽവിയിൽ നിരാശരാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

ചുരുങ്ങിയ കാലയളവിൽ വലിയ തോതിലുള്ള വികസനമാണ് വിമാനത്താതാവളത്തിൽ നടന്നത് മറ്റേതൊരു രാജ്യാന്തര വിമാന താവളത്തോടും കിടപിടിക്കുന്ന തരത്തിലുള്ള അടിസ്ഥാന സൌകരൃങ്ങളാണ് കണ്ണൂർ വിമാനത്താവളത്തിലു ള്ളതെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൻറെ ഒന്നാം വാർഷികഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ആർട്ട് ഗാലറി ഇന്റർനാഷണൽ ലോഞ്ച് ടൂറിസം ഇൻഫർമേഷൻ കൌണ്ടർ സൌജന്യ വൈഫൈ സേവനം എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു മന്ത്രി ഇ

ചലച്ചിത്ര നടൻ നിവിൻ പോളി ഫ്ലാഗ് ഓഫ് ചെയ്തു ടൂറിസ്റ്റ് ബസുകളിൽ ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ നടത്തുന്ന സംസ്ഥാന വ്യാപക പ്രിശോധന തുടരുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു നിരന്തര പരിശോധനയും പിഴ ചുമത്തലും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ടൂറിസ്റ്റ് ബസ്സുടമകൾ നടത്തിയ കൂടികാഴ്ചക്ക് ശേഷം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി

എസ് ആർ

എസ് ആർ ടി സിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി

എൽ ഫുട് ബോളിൽ ഇന്ന് ജംഷഡ്പൂർ ചെന്നൈയിൻ എഫ് സിയെ നേരിടും

ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മൽസരത്തിൽ ഗോവ എഫ് സി മറുപടിയില്ലാത്ത ഒരു ഗോളിന് ഹൈദരാബാദ് എഫ് സിയെ തോൽപ്പിച്ചിരുന്നു

തുമ്പ സെന്റ് സേവേഴ്സിൽ നടക്കുന്ന ആദ്യ മൽസരത്തിൽ ഡൽഹിയാണ് കേരളത്തിന്റെ എതിരാളി

കഴിഞ്ഞ തവണ സെമിയിലെത്തിയ കേരളം ഇത്തവണ വിദർഭ ഡൽഹി രാജസ്ഥാൻ പഞ്ചാബ് ആന്ധ്ര ഹൈദരാബാദ് ഗുജറാത്ത് ബംഗാൾ എന്നീ ടീമുകൾ ക്കൊപ്പമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി എ സി മൊയ്തീൻ വിളിച്ചു ചേർത്ത യോഗം നാളെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ ചേരും കണ്ണൂരിൽ ചേരുന്ന ആദ്യ യോഗത്തിൽ കണ്ണൂർ കാസർകോട് ജില്ലകളിലെ തദ്ദേശഭരണ ്രസ്ഥാപനങ്ങൾ പങ്കെടുക്കും നിലവിലെ പദ്ധതി പ്രവർത്തനത്തിന്റെ പുരോഗതിയും അടുത്ത സാമ്പത്തിക വർഷ ത്തെ പദ്ധതികളുടെ ഒരുക്കവും വിലയിരുത്താനാണ് മന്ത്രി യോഗം വിളിച്ചത്

നായനാരുടെ ജന്മശതാബ്ദി ആഘോഷം ഇന്ന് വൈകീട്ട് കണ്ണൂർ കല്യാശ്ശേരിയിൽ നടക്കും മന്ത്രി ഇ

ജയരാജൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന കാർഷിക അവാർഡുകളുടെ വിതരണം ഇന്ന് ആലപ്പുഴയിൽ നടക്കും വൈകിട്ട് വണ്ടാരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി

സുനിൽകുമാർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും ഡിസിസി പ്രസിഡന്റുമാരുടെ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ യോഗത്തിൽ ചർച്ച ചെയ്യും ഛത്തീസ്ഗഡിൽ സായുധസേനാ കമാൻഡറെ വെടിവെച്ചു കൊന്ന ശേഷം സൈനികൻ സ്വയം വെടിവെച്ച് മരിച്ചു സംസ്ഥാ നത്ത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ടു പേരും തമ്മിൽ രാവിലെ വാക്കുതർക്കമുണ്ടായെന്നും ഇത് തുടർന്ന് സൈനികൻ വിക്രം രാജ്ബതി കമാൻഡർ മേലാ രാമുറിനെ വെടി വെച്ച് വീഴ്ത്തുകയായിരുന്നുവെന്നും റാഞ്ചി പൊലീസ് സൂപ്രണ്ട് അറിയിച്ചു തുടർന്ന് ജവാൻ അതേ തോക്കുപയോഗിച്ച് ആത്മ ഹത്യ ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി തെലങ്കാനയിൽ വെറ്ററിനറി ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ നാലു പേർ വെടിയേറ്റു മരിച്ച സംഭവം പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേ ഷിപ്പിക്കണമെന്ന പൊതുതാത്പര്യ ഹർജിയിൽ സുപ്രീംകോടതി മറ്റന്നാൾ വാദം കേൾക്കും ഏറ്റുമുട്ടൽ വ്യാജമാണെന്നും സംഭവ ത്തിൽ ഉൾപ്പെട്ടു പൊലീസ് ഓഫീസർമാർക്കെതിരെ കേസെടുക്ക ണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് സംഭവത്തിൽ ഉൾപ്പെട്ട പൊലീസുകാർക്കെതിരെ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം ചീഫ് ജസ്റ്റിസ് എസ് ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് പൊതുതാത്പര്യ ഹർജി പരിഗണിക്കുക

വീട്ടുകാരിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ ആവശ്യപ്പെട്ട അവർ അത് നല്കിയ ശേഷമാണ് മടങ്ങിയത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് വീട്ടുകാരുടെ മൊഴിരേഖപ്പെടുത്തി കൊല്ലം ശക്തികുളങ്ങരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയി മടങ്ങിയെത്താൻ വൈകിയ ബോട്ട് ക്ണ്ടതായി വിവരം ലഭിച്ചു

എൻജിൻ തകരാറിലായ ബോട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒഴുകി നടക്കുകയാണ് മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ്ഗാർഡും കോസ്റ്റൽപോലീസും തിരച്ചിൽ തുടങ്ങി കർഷകർക്ക് വൈദ്യുതി സബ്സിഡി ലഭിക്കാൻ മുപ്പത് സെന്റ് ഭൂമിയെങ്കിലും വേണമെന്ന കെഎസ്ഇബി ഉത്തരവ് പിൻവലിക്കണമെന്നും പത്ത് സെന്റ് ഭൂമിയെങ്കിലും ഉള്ള എല്ലാ കർഷകർക്കും വൈദ്യുതി സബ്സിഡി അനുവദിക്കണമെന്നും കോഴിക്കോട് താലൂക്ക് ജൈവ കർഷക സംഗമം ആവശ്യപ്പെട്ടു